മുത്തലാഖ് നിരോധന നിയമം നടപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബിൽ പുനഃപരിശോധിക്കുമെന്ന കോൺഗ്രസ് നിലപാടിന് വിമർശനം

കൂട്ടായ്മയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

ഇന്തൃക്ക് ഏഴ് വിക്കറ്റ് വിജയം

രാജ്യത്തെ മുസ്ലീം വനിതകൾക്ക് സാമൂഹ്യ നീതി ഉറപ്പു വരുത്താൻ മുന്നണി പ്രതിജ്ഞാബദ്ധമെന്ന് അദ്ദേഹം പറഞ്ഞു

മീ നീളമുള്ള ഫലാകട്ടാ സൽസലാബാരി ദേശീയപാതക്ക് അദ്ദേഹം തറക്കല്പിട്ടു കൊൽക്കത്ത ഹൈക്കോടതിയുടെ പുതിയ സർക്യൂട്ട് ബഞ്ചിന്റെ ഉദ്ഘാടനവും പ്രധാനമന്ത്രി നിർവ്വഹിച്ചു

പ്രതിപക്ഷത്തിന്റെ മഹാസഖ്യം അവസരവാദത്തിന്റെയും സ്വാർത്ഥതയുടെയും സഖ്യമാണെന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂരിൽ റാലിയിൽ അദ്ദേഹം ആരോപിച്ചു കാർഷിക വായ്പ എഴുതിത്തള്ളൽ കൊണ്ട് കോൺഗ്രസ് സഹായിച്ചത് അഴിമതിക്കാരെയും ഇടനിലക്കാരെയും മാത്രമാണ്

ഗുവാഹത്തി ഇറ്റാനഗർ അഗർത്തല്പ്പിഎന്നിവിടങ്ങളിൽ വിവിധ പരിപാടികളിൽ അദ്ദേഹം ഉത്തര ഗുവാഹത്തിയുമായി ബന്ധിപ്പിക്കുന്ന ബ്രഹ്മപുത്ര നദിക്കു കുറുകെയുള്ള ആറുവരി പാതയ്ക്ക് അദ്ദേഹം തറക്കല്ലിടും

ആർ എൽ ബയോ റിഫൈനറി ബറൌനി ഗുവാഹത്തി ഗ്യാസ് പൈപ്പ് ലൈൻ വടക്കു കിഴക്കൻ വാതകഗ്രിഡ് പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിക്കും ചാങ്സാരിയിൽ പൊതുയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും ഇറ്റാനഗറിൽ ഹെല്ലോങിയിൽ തന്ത്രപ്രധാനമായ ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് ശ്രീ

എല്ലാ കാലാവസ്ഥയിലും ഗതാഗതം ഉറപ്പാക്കുന്ന തവാഖ ഭൂഗർഭപാതയുടെ തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവ്വഹിക്കും അരുണാചൽ പ്രദേശിന്റെ പ്രാദേശിക ദൂരദർശൻ ചാനലായ ഡി

അഗർത്തലയിൽ സ്വാമി വിവേകാനന്ദ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ ഗാർജിയിൽ നിന്നും ബെലോനിയയിലേക്കുള്ള റെയിൽപ്പാതയും പ്രധാനമന്ത്രി രാഷ്ട്രത്തിനു സമർപ്പിക്കും

പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രാജ്യസ്ട് നേരത്തെ പിരിഞ്ഞു ലോക്സഭ പലവട്ടം തടസപ്പെട്ടു

എന്നാൽ ചെയർമാൻ എം വെങ്കയ്യനായിഡു വിഷയത്തിൽ ചർച്ചയ്ക്ക് അനുമതി നൽകിയില്ല രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് നന്ദി രേഖപ്പെടുത്തിയുള്ള ചർച്ചയിൽ ഇത് ഉന്നയിക്കാമെന്ന് അദ്ദേഹം അറിയിച്ചു ഇത് അംഗീകരിക്കാതെ കോൺഗ്രസ്സ് തൃണമൂൽ കോൺഗ്രസ്സ് അംഗങ്ങൾ മുദ്രാവാക്യം മുഴക്കി പ്രതിഷേധിച്ചു തുടർന്ന് രാജ്യസഭ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു ലോക്സഭയിൽ കോൺഗ്രസ്സ് ടി എം സി ഇടത് പാർട്ടികൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു

ഉച്ചയ്ക്ക് ശേഷം സഭ സമ്മേളിച്ച ഉടൻ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ് തുടങ്ങി വിവിധ പ്രതിപക്ഷ പാർട്ടി അംഗങ്ങൾ റാഫേൽ യുദ്ധവിമാന ഇടപാട് വിഷയത്തിൽ സഭയിൽ നിന്നും ഇറങ്ങിപ്പോയി കർഷകർക്കായി എൻ

എ ഗവണ്മെന്റ് ഒന്നും ചെയ്തില്ലെന്ന് ബജറ്റ് ചർച്ചയിൽ പങ്കുചേർന്നു കൊണ്ട് ബിജെഡി അംഗം തതാഗത സാദ്പതി ആരോപിച്ചു പുതിയ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നുതിനുള്ള വ്യക്തമായ കാഴ്ചപ്പാടുകളാണ് ബഡ്ജറ്റിൽ പ്രതിഫിലിച്ചതെന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്ന ബിജെപി അംഗം ിൽനുരാഗ് ഠാകൂർ പറഞ്ഞു

സത്യം പുറത്തു കൊണ്ടു വരാൻ ഇതു പ്രസിദ്ധീകരിച്ച മാധ്യമത്തിനു താല്പര്യമുണ്ടെങ്കിൽ മന്ത്രാലയത്തെ സമീപിക്കാവുന്നതാണെന്നും ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു

ഉത്തർപ്രദേശിലെ ഖുഷിനഗർ സഹാറൺപൂർ ജില്ലകളിൽ നിന്നായി പേരാണ് മരിച്ചത്

കാണാതായ ഒരാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തുടരുകയാണ്

അഞ്ജുസിംഗിന്റെ അമ്മ രുക്മസിംഗ് ഇതേ കേസിൽ സ്മർപ്പിച്ച അപ്പീൽ നേരത്തെ സ്വീകരിച്ചതായി ജസ്റ്റിസുമാർ ്യ എൽ നാഗേശ്വരറാവുവും എം

ആവശ്യമായ പുതിയ ഡിവിഷണൽ തല തസ്തികകൾ സംബന്ധിച്ച് റിപ്പോർട്ട് നല്കാൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ചെയർമാനായ സമിതിയെയും നിയോഗിച്ചിട്ടുണ്ട്

ഡി എഫിൽ അംഗമാകാനും സഹകരിച്ചു പ്രവർത്തിക്കാനും താത്പര്യം അറിയിച്ച പാർട്ടികളുമായി ചർച്ച നടന്നുവരുകയാണെന്നും ഇതിനായി യു ഡി

ഓക്ക്ലന്റിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ ഏഴു വിക്കറ്റിനാണ് ജയിച്ചത്

ഇന്ത്യക്ക് വേണ്ടി ക്യാപ്റ്റൻ രോഹിത്ശർമ്മ അർദ്ധ സെഞ്ചറി നേടി

ഇതോടെ പരമ്പര സമനിലയിലായി

അതേ സമയം ഇന്ത്യൻ വ്വകീതികൾ രണ്ടാം മത്സരത്തിൽ നാല് വിക്കറ്റ് തോൽവി ഏറ്റുവാങ്ങി ഇതോടെ ഇന്ത്യയ്ക്ക് പരമ്പര നഷ്ടമായി